സംസ്ക്കാരമില്ലാതെ ഇന്ത്യ പൂർണ്ണമല്ലെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ

നൽകുന്ന അടൽ കിസാൻ മസ്ദൂർ കൃാന്റീനുകൾ തുടങ്ങുമെന്ന് ഹരിയാന സർക്കാർ

രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്

ആദ്യ മത്സരത്തിൽ ഇന്തൃയ്ക്ക് മോശം തുടക്കം

രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ പ്രശ്നരഹിതമാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്

അമ്മേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ വരവിനായി രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്

പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും പ്രതിരോധം സുരക്ഷ വാണിജ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ

ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യമായ അമേരിക്കയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തിപെടുത്തലായാണ് ട്രംപിന്റെ ഇന്ത്യാ സന്ദർശനം വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്ത് അഹമ്മദാബാദിലെമ്പാടും ബോർഡുകൾ ഉയർന്ന് കഴിഞ്ഞു തിങ്കളാഴ്ച നമസ്തേ ട്രംപ് പരിപാടി നടക്കുന്ന സർദാർ പട്ടേൽ സ്റ്റേഡിയത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്

രോഗബാധയുടെ പ്രഭവകേന്ദ്രമായ വുഹാനിലേക്ക് ഇന്ത്യ മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും എത്തിക്കും കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ

കൊറോണ വൈറസ് ബാധയെ പ്രതിരോധിക്കുന്ന ച്ചൈന്യൂർട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഈ നടപടി വിമാനത്തിരിൽ മടക്കയാത്രയിൽ വുഹാനിൽ അവശേഷിക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തി്ക്കും തിരികെ വരാൻ താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ എംബ്സിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ്രവീഷ് കുമാർ അറിയിച്ചു ജപ്പാൻ തീരത്ത് ഫിട്ടീച്ചിട്ടിരിക്കുന്ന ആഢംബര കപ്പലിൽ ഇതുവരെ എട്ട് ഇന്ത്യക്കാർക്ക് ഒവറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ചവരെ ആശുഷ്ട്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്

കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ രാജ്യത്തെ വിവിധ ഗ്രാമങ്ങളിൽ നഗരവൽക്കരണ പരിപാടികൾ നടപ്പാക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം

ഗ്രാമങ്ങളെ കൂട്ടിയിണക്കി ഗ്രാമീണത നഷ്ടപ്പെടുത്താതെ തന്നെ നഗരസൌകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് പദ്ധതികൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്താകമാനം മുന്നൂറോളം റർബാൻ ഗ്രാമമേഖല കണ്ടെത്തി സമയബന്ധിതമായി വികസന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് പദ്ധതിയുടെ വിജയം മുന്നിൽകണ്ട് അടുത്ത മൂന്നു വർഷ കാലയളവിൽ ആയിരം ഗ്രാമ മേഖല കൂടി കണ്ടെത്തി വികസനം നടപ്പിലാക്കാൻ നിതി ആയോഗ് നടപടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്

അഴിമതി ഭീകരവാദം മതമൌലിക വാദം ലിംഗവിവേചനം തുടങ്ങിയവയ്ക്കെതിരെ പോരാടാൻ അദ്ദേഹം യുവാക്കളോടായി പറഞ്ഞു ന്യൂഡൽഹിയിൽ ഛാത്ര സൻസദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഛണ്ഡിഗഢിൽ ഇന്നലെ സംസ്ഥാന നിയമസഭയുടെ ബ്ഷജറ്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ഗവർണർ സത്യദിയേള് ന്രെയൻ ആര്യ അറിയിച്ചതാണ് ഇക്കാര്യം

കൂടാതെ ബി

ജി

തെക്കൻ കശ്മീരിന്റെ സുരക്ഷാ സ്ഥിതിഗതി അവലോകനം ചെയ്തു

ഹർഷവർദ്ധൻ

ക്ഷയരോഗ നിർമ്മാർജ്ജനം ഏറ്റവും വലിയ പദ്ധതിയാണെന്നും ഇതിനായി സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക് ഉത്തർപ്രദേശിൽ വാരാണസിയിലെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൽ ആയിരങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഏത്തി

അലഹബാദിൽ സംഗം നദിയിലാണ് വിശ്വാസികൾ പുണ്യസ്നാനം ചെയ്യുന്നത്

തളിപറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ദർശനത്തിന് വലിയ നിര ദൃശ്യമാണ്

ടോസ് നേടിയ ന്യൂസിലന്റ് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു വെല്ലിങ്ടണിലാണ് മത്സരം

പൃഥി ഷാ ചേതേശ്വർ പൂജാര വിരാട് കോഹ്ലി മായങ്ക് അഗർവാൾ എന്നിവരുടെ വിക്കറ്റുകളാണ് നഷ്ടമായത്